ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വാതക നിർഗ്ഗമന തീവ്രത ജി

സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ചു

എഫ്

ഫൈനലിൽ പി

സിന്ധു ഇന്ന് മത്സ്തിക്കും

അയൽ രാജ്യങ്ങളിൽ ന്യൂനപക്ഷ വഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന മതപരമായ പീഡനങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു

പാർലമെന്ററി പാർട്ടി യോഗത്തിനു ശേഷം കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് പ്രധാനമന്ത്രിയുടെ അഭിപ്രായം അറിയിച്ചത് ബിൽ രാജ്യസഭയിലും അനായാസം പാസ്സാക്കാൻ കഴിയുമെന്ന് ശ്രീ ജോഷി പറഞ്ഞു

ആറു മണിക്കൂർ സമയമാണ് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കായി മാറ്റിവച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്

സംസ്ഥാനങ്ങളുടെ ജി എസ് ടി വിഹിതം യഥാസമയം ലഭ്യമാക്കുന്നില്ലെന്നാരോപിച്ചാണ് ടി

എസ് അംഗങ്ങൾ ബഹളം വച്ചത് വിഷയത്തിൽ ഇടപെടണമെന്ന് ടി

ഇക്കാര്യം നേരത്തെ ചർച്ചചെയ്തതിനാൽ കൂടുതൽ സമയം അനുവദിക്കുന്നില്ലെന്ന് അധ്യക്ഷൻ അറിയിച്ചു ഇതോടെ ടി ആർ എസ് അംഗങ്ങൾ ബഹളം തുടർന്നു കോൺഗ്രസ് ഇടതുകക്ഷി അംഗങ്ങളും ടി

ബഹളം ശമിക്കാത്തതിനാൽ സഭ ഉച്ചവരെ നിർത്തി വച്ചു

എസ് എൽ

എൽ

കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമാണ് ലോകം അത് അംഗീകരിച്ചു കഴിഞ്ഞു അതിനെ തുടർന്നാണ് പാരീസ് ഉച്ചകോടിയിൽ സമഗ്ര ഉടമ്പടി തയ്യാറാക്കിയത് പാരീസ് ് ഉടമ്പടി പാലിക്കാനുള്ള പരിശ്രമങ്ങളുമായി എല്ലാ രാഷ്ട്രങ്ങളും മുന്നോട്ടു പോകണം

ഇന്ത്യ വളരെ സൌകര്യപ്രദമായ കർമ്മ പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നതെന്ന് ശ്രീ

ദുരന്തത്തെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ള പ്രാദേശിക സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനും ആവശ്യമായ മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നതിനും നമ്മൾ നമുക്കായി എന്ന ജനകീയ ക്യാമ്പയിൻ നടത്തും കൃഷി മത്സ്യബന്ധനം തദ്ദേശസ്വയംഭരണം എന്നീ വകുപ്പുകളുടെ പദ്ധതികൾക്കും മാപ്പത്തോൺ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി

വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി

റാഞ്ചി ഹസാരിബാഗ് ഗിരിദിഹ് ബൊക്കാറോ ഛത്ര റാംഗഡ് സരായ്കേല ഖർസവാൻ കൊഡേർമ എന്നീ ജില്ലകളിലെ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്

മറ്റ് മണ്ഡലങ്ങളിൽ രാവിലെ ഏഴുമുതൽ വൈകിട്ട് അഞ്ചു മണിവരെയും പോളിംഗ് നടക്കും

മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴിയും കർഷകർക്ക് സാമ്പത്തികമായി നേട്ടം ഉാകുന്നു

ഗവൺമെന്റ് വകുപ്പുകൾക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് അടുത്ത വർഷം മാർച്ച് മാസത്തിലെ മൂന്ന്റ്മത്തെ ആഴ്ചയോടെയാണ് പദ്ധതികളുടെ ഉദ്ഘാടനം നിശ്ചരിച്ചിരിക്കുന്നത്

എഫ് ഫൈനൽസിന്റെ സീസണിലെ അവസാന മൽസരത്തിൽ ഇന്ത്യൻ താരം പി വി സിന്ധു കളിക്കും

സിംഗിൾസ് ഇനങ്ങളിൽ സൈന നെഹ്വാൾ കിഡംബി ശ്രീകാന്ത് പി

വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ എൻ

മിക്സഡിൽ പ്രണവ് ജെറി ചോപ്ര എൻ സിക്കി റെഡ്നി സഖ്യവും മാറ്റുരയ്ക്കും

എസ് പ്രസിഡന്റ് ഡോണാൾഡ് ട്രംപ് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോയുമായി ഇന്നലെ ഓവൽ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു